ലോകം അംഗീകരിക്കുന്ന നിലയിലേക്ക് കേരളത്തിന് മാറ്റം വന്നി രിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടത് ഗവൺമെന്റിന്റെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവ നന്തപുരത്ത് പ്രകാശനം ചെയ്തു സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലക ളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കടൽക്ഷോഭവും രൂക്ഷമാ യി

ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റിൻഡീസ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു ഇന്ന് ശ്രീലങ്ക ബംഗ്ലാദേശിനെ നേരിടും ൾ ൽ ൾ സാധാരണക്കാരുടെ ജീവിതം ആയാസരഹിതമാക്കാൻ എല്ലാ മന്ത്രാലയങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി നിർദേശിച്ചു ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊ ണ്ടാണ് ഭരണാനുകൂല സമീപനം തെരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത അഞ്ച് വർഷത്തെ വികസന കാഴ്ച്ചപ്പാ ടുകൾ മുന്നിൽ കണ്ടാണ് ഓരോ വോട്ടറും സമ്മതിദാനം വിനിയോ ഗിച്ചത് ന്യൂഡൽഹിയിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ജനങ്ങളുടെ വലിയ പ്രതീക്ഷകൾ പൂർത്തീകരിക്കുന്നത് വെല്ലു വിളിയായല്ല ഗവൺമെന്റ് കാണുന്നതെന്നും ലക്ഷ്യപ്രാപ്തിക്ക് ലഭിച്ച അവസരം എന്ന നിലയിലാണ് അതിനെ വിലയിരുത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വരുന്ന അഞ്ച് വർഷത്തെ പദ്ധതി രൂപരേഖ് തയാറാക്കാൻ എല്ലാ സെക്രട്ടറിമാരോടും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ജനവിധിക്കനുസൃ തായി മികച്ച ജീവിത നിലവാരം കൈവരിക്കാൻ പര്യാപ്തമായിരി ക്കണം ഓരോ മന്ത്രാലയത്തിന്റേയും പ്രവർത്തനമെന്നും നരേന്ദ്ര മോദി ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ്ങ് അമിത് ഷാ നിർമ്മല സീതാരാമൻ ജിതേന്ദ്രസിങ്ങ് തുടങ്ങിയവരും യോഗ ത്തിൽ പങ്കെടുത്തു ഷാങ്ഹായി കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാ നമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി വ്യോമാതിർത്തി തുറക്കാൻ പാകി സ്ഥാൻ തത്വത്തിൽ തീരുമാനിച്ചു അടുത്ത വ്യാഴം വെള്ളി ദിവസ ങ്ങളിലാണ് കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഉച്ചകോടി സംഘടിപ്പി ക്കുന്നത്

പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് പൊതുബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാ മൻ വിവിധ സംഘടനകളും പ്രതിനിധികളുമായി ഇന്ന് ചർച്ചആരംഭി ക്കും കാർഷിക ഗ്രാമ വികസന മേഖലകളിൽപ്പെട്ടവരുമായിട്ടാണ് ഇന്നത്തെ ആദ്യ ചർച്ചു വാണിജ്യ വൃവസായ മേഖലയുമായി തുടർന്ന് ചർച്ച നടത്തും

സംസ്ഥാന ഗവൺമെന്റിന്റെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് നൽകി പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം അഴിമതി ഏതാണ്ട് പൂർണമായി ഇല്ലാതാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞെന്നും നാടിന്റെ ഭാവി വികസനത്തിന് ഈ അന്തരീക്ഷം പ്രയോജനപ്രദമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനം എല്ലാ വരിലുമെത്തിക്കാൻ രൂപീകരിച്ച നാല് മിഷനുകൾ വൻ മാറ്റത്തിന് വഴിയൊരുക്കി ലോകത്തെ വൻകിട വ്യവസായികൾ കേരളത്തി ലേക്ക് എത്താൻ വഴിയൊരുക്കിയത് ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഫലമായാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പശ്ചാത്തല സൌകര്യ വികസനത്തിനും മലയോര തീരദേശ ഹൈവേകൾക്കും പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിനും ഗവൺമെന്റ് ഊന്നൽ നൽകി വരികയാണ് ഇതിനാവശ്യമായ പതിനായിരം കോടി രൂപ കിഫ്ബി വഴി കണ്ടെത്തു മെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ജനാധിപതൃത്തിലെ സുതാരൃതയുടെ മികച്ച തെളിവാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനമെന്ന് സ്പീക്കർ പറഞ്ഞു വാഗ്ദാന ങ്ങളിൽ എത്ര നീക്കിബാക്കിയുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുന്നത് ജനാധിപത്യത്തിലെ പുതിയ കാൽവെപ്പാണെന്നും സ്പീക്കർ അഭി പ്രായപ്പെട്ടു മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം രൂപംകൊണ്ട ന്യൂനമർദം ശക്തിപ്രാപിച്ചതിനാൽ സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു

ഈ സാഹചരൃത്തിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഒഴികെ ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു

സംസ്ഥാനത്ത് ഇന്നലെ കാലവർഷവുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ മൂന്ന് പേരാണ് മരിച്ചത്

മൂന്നുകുടിക്കൽ ബീച്ച് പരിസരത്ത് കടലാക്രമണത്തിൽ ബസ്സ്റ്റോപ്പ് പൂർണമായി തകർന്നു കാലവർഷക്കെടുതികൾ നേരിടുന്നതിന്റെ ഭാഗ മായി ജില്ലയിലെ താലൂക്കുകളിൽ കൺട്രോൾ റൂം തുറന്നു

ആലപ്പുഴയിൽ ശക്തമായ മഴ തുടരുകയാണ് കാറ്റിൽ മരം വീണ് പത്തോളം വീടുകൾക്ക് നാശമുണ്ടായി പ്രലയിടങ്ങളിലും വൈദ്യൂതി ബന്ധവും തടസ്സപ്പെട്ടു അമ്പലപ്പുഴയിലും ഒറ്റമശ്ശേരിയിലും കടൽക്ഷോഭവും തുടരുകയാണ് കണ്ണൂർ ജില്ലയിലും മഴ തുടരുകയാണ് പയ്യാമ്പലം സിറ്റി പുതി യങ്ങാടി മാട്ടൂൽ ഭാഗങ്ങളിൽ കടലേറ്റം രൂക്ഷമായി

നൂറോളം വീടുകളിൽ വെള്ളംകയറി

കടൽഭിത്തിയില്ലാത്ത പൊന്നാനി ലൈറ്റ് ഹൌസ് ഭാഗത്തും അലിയാർപള്ളി ഭാഗങ്ങളിലും മുറിഞ്ഞഴി മേഖലകളിലുമാണ് കടലാക്രമണം വള്ളിക്കുന്ന് പരപ്പാൽ ബീച്ചിലും വെളിയങ്കോട്ട് പാലപ്പെട്ടി മേഖലകളിലും കടലാക്രമണമുണ്ട് കൊച്ചി ചെല്ലാനം മേഖലയിലും ശക്തമായ കടലാക്രമണം തുട രുകയാണ് മുപ്പതോളം വീടുകളിൽ വെള്ളം കയറി നൂറിലേറെ വീടുകൾ ഭീഷണിയിലാണ് കടലുണ്ടിയിൽ കൂട്ടുകാരോടൊപ്പം കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർഥിയെ ഇന്നലെ വൈകീട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായി കലന്തത്തിന്റെ പുരക്കൽ മുഹമ്മദ് മുസമ്മിലിനെയാണ് കാണാതായത്

ഇരുകരയിലും താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ഇടതുമു ന്നണി യോഗം ഇന്ന് വൈകീട്ട് തിരുവനന്തപുരത്ത് ചേരും ഗവൺമെന്റിന്റെ ശബരിമല നിലപാട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാ യെന്ന ഘടകക്ഷികളുടെ അഭിപ്രായം യോഗം ചർച്ച ചെയ്തേക്കും യുഡിഎഫിന് അനുകൂലമായി ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാ യെന്നും ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ തെറ്റിധരിപ്പിക്കാൻ എതിർചേരിക്ക് കഴിഞ്ഞെന്നും ഇടതുപാർട്ടികൾ കണ്ടെത്തിയിരുന്നു വിശ്വാസം വീണ്ടെടുക്കാൻ ആവശ്യമായ നടപടികളും യോഗം ചർച്ച ചെയ്തേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും എയിഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക ജീവന ക്കാരുടെ നിയമനവും അംഗീകാരവും തസ്തിക നിർണയവും പൂർണ മായി ഓൺലൈനാക്കുന്നു വെബ് സോഫ്റ്റ് വെയർ തയാറാക്കി കൈറ്റ് വികസിപ്പിച്ച സമന്ധയ എന്ന് ഈ സംവിധാനം ഇന്ന് തിരുവന ന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ നിയമസഭാ സമു ച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്യും

പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ ലീഗ് അവർക്കൊപ്പമുണ്ടാകുമെന്നും മുഹമ്മദ് ബഷീർ കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു

ഇന്ന് ബ്രിസ്റ്റോളിൽ ശ്രീലങ്ക ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും വൈകീട്ട് മൂന്നിനാണ് മത്സരം കാസർകോട് മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയി പ്പിച്ചത് സിപിഐഎം ആണെന്ന് ബിജെപ്പി ്സംസ്ഥാന ജനറൽ സെക്ര ട്ടറി കെ

കാസർകോട്ട് ബിജെപി ജില്ലാ നേതൃ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്ന് സിപിഐഎം വ്യാമോ ഹിച്ചിരുന്നെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു

ഇന്ന് പ്രത്യേക പൂജകളില്ല പ്രതിഷ്ഠാദിനമായ നാളെ മഹാഗണപതിഹോമം ഉദയാസ്തമന പൂജ പടിപൂജ കളഭാഭിഷേകം പുഷ്പാഭിഷേകം എന്നിവ നടക്കും തുടർന്ന് രാത്രി പത്തിന് നട അടക്കും ജാതി അടിസ്ഥാനത്തിൽ വിവാഹാലോചനകൾ ക്ഷണിക്കുന്ന മാട്രി മോണിയൽ പരസ്യങ്ങൾക്കെതിരേയും പുനർവിവാഹ പരസ്യ ങ്ങൾക്കെതിരേയും ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു പാലക്കാട്ട് കമ്മീഷൻ അദാലത്താണ് ഈ നിർദേശം മുന്നോട്ട് വെച്ചത്

പാലിന്റെ ഗുണ നിലവാരം സംബന്ധിച്ച പരാതികളെ തുടർന്നാണിത്

ഇതിന്റെ പരി ശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും കൊല്ലം കരുനാഗപ്പള്ളിയിൽ സൂപ്പർമാർക്കറ്റ് ്കെട്ടിടത്തിന് തീപിടിച്ചു നഗരത്തിലെ തോട്ടക്കുഴി സൂപ്പർമാർക്കറ്റിനാണ് പുലർച്ചെ രണ്ടരക്ക് തീപിടിച്ചത് കായംകുളം കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെ ആറ് ഫയർ എൻജിനുകൾ സ്ഥലത്തെത്തി തീ അണച്ചു